ഉൾപ്പെടെ പിപിധ വിഷയങ്ങളിൽ പ്രതിഷേന പ്രകടനങ്ങളെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

സമർപ്പിച്ച പുനഃപീരിശോധന ഹർജികളിൽ സുപ്രീംകോടതി പ്പിധി പറയുന്നത് മാറ്റി

ഇന്ത്യയുടെ പുരുഷ വനിത ടീമുകൾ ന്യൂസിലന്റിനോട് പരാജയപ്പെട്ടു

പി ബിഎസ്പി ആർ

ഡി കക്ഷികൾ നോട്ടീസ് നല്കിയിരുന്നു

എന്നാൽ നിയമനം സംബന്ധിച്ച ആശങ്കകൾ മാനവവിഭവ ശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേകർ തള്ളിക്കളഞ്ഞു

അസം പൌരത്വ രജിസ്റ്റർ സംബന്ധിച്ച പ്രശ്നമാണ് കോൺഗ്രസ് എം

ഒഡീഷയിലെ അസ്ക്കയിൽ നിന്നുള്ള എം

സ്വയിനിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സമൂഹത്തിന് അദ്ദേഹം നല്കിയ സേവനങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തെ കേരള ഗവണ്മെന്റ് സുപ്രീംകോടതിയിൽ എതിർത്തു അതേ സമയം വിധി പുനഃപരിശോധിക്കണമെന്ന് നിരവധി സംഘടനകൾ ആവശ്യപ്പെട്ടു

എസും ക്ഷേത്ര തന്ത്രിയും മറ്റ് നിരവധി സംഘടനകളും കേസ് പുനഃപരിശോധിക്കണമെന്ന് കോടതിയിൽ വാദിച്ചു

ലണ്ടനിൽ വസ്തുവകകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്

കോടതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാനും അന്വേഷണത്തിൽ സഹകരിക്കാനും നിർദ്ദേശം നൽകിയത് ലണ്ടനിൽ രണ്ട് വീടുകളും ആറ് ഫ്ളാറ്റുകളും വാദ്ര സ്വന്തമാക്കിയതായി വിവരമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു

ജെ

ജെ

ഈ പണമാണ് ലണ്ടനിൽ വസ്തുവകകൾ വാങ്ങിക്കൂട്ടാൻ ഉപയോഗിച്ചതെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു

മീ ദൈർഘ്യമുള്ള തന്ത്രപ്രധാനമായ ജമ്മു ശ്രീനഗർ ദേശീയപാത അധികൃതർ ഭാഗികമായി അടച്ചു ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാന സർവ്വീസുകളും റദ്ദാക്കിയിട്ടുണ്ട് താഴ്വരയിൽ മഴയും മഞ്ഞു വീഴ്ചയും ക്രമേണ വർദ്ധിക്കാൻ സാദ്ധ്യതയുണ്ടെന്നും വെള്ളിയാഴ്ചയോടെ സ്ഥിതി മെച്ചപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ഡയറക്ടർ സോനം ലോട്ടസ് ആകാശവാണിയോട് പറഞ്ഞു

വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ നിരവധി ചുവടുവയ്പ്പുകൾ ഉണ്ടായതായി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മാനവ വിഭവശേഷി മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ആർ

കുട്ടികളുടെ പഠന വിദ്യാഭ്യാസ നിലവാരങ്ങൾ ഉയർത്തുന്നതിന് സഹായിക്കുമെന്നും ശ്രീ മീണ കൂട്ടിച്ചേർത്തു

സാംസ്കാരിക മന്ത്രാലയത്തിനു കീഴിലെ സ്വയംഭരണ സംഗീത നാടക അക്കാഡമിയുടെ സ്ഥാപനമായ ജനറൽ കൌൺസിലാണ് പൂരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്

പ്രക്കട്നക്കല്ാരൂപങ്ങളിൽ സമഗ്ര സംഭാവനയ്ക്ക് രണ്ട് പേർ പുരസ്കാരത്തിനർഹരായി ന്യൂസ് ഡസ്ക് ആകാശുവാണി

വാർത്താ വിനിമയ സംവിധാനങ്ങൾ തടസ്സം കൂടാതെ തുടരാൻ ജി

സാറ്റ് ശൃംഖല ടെലിവിഷൻ സംപ്രേഷണം ഡിജിറ്റൽ വാർത്താ ശേഖരണം ഡി ടി എച്ച് ടെലിവിഷൻ സംവിധാനം തുടങ്ങി നിരവധി കാരൃങ്ങൾക്ക് ഉപഗ്രഹം പ്രയോജനപ്പെടും ഇന്തൃ ഒട്ടാകെയും ലക്ഷദ്വീപ് ആന്റമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളും ഈ ഉപഗ്രഹത്തിന്റെ പരിധിയിൽ വരും

പൊലീസ് സേനയിൽ ന്യൂഡൽഹിയിൽ താഴെത്തട്ടിലെ നൈപ്പുണ്ട്യ വികസനം മത്സരക്ഷമത സ്വഭാവ പരിവർത്തനം ലിംഗസമത്വം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ രണ്ടു ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും

ആഭ്യന്തര മന്ത്രാലയം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ ദുരന്ത പ്രതികരണ സേന ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷൻ അഥവാ ഐഒആർഎ എന്നിവയുടെ സഹകരണത്തോടെ വിദേശകാര്യ മന്ത്രാലയമാണ് രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്

അദ്ദേഹ്മത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിദേശ കമ്പനിയായ ഹെക്സാം ക്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ലാഹോറിലെ രണ്ടു ഹൌസിംഗ് സ്സ്ട്രൈസറ്റികൾ എന്നിവയെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ടെന്ന് നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ വക്താവ് അറിയിച്ചു അലീംഖാനെ നാളെ ലാഹോറിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും

അബ്ദുൾ മൊമെൻ നാലു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാത്രി ന്യൂഡൽഹിയിലെത്തും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായും ബംഗ്ലാദേശ് വിദേശകാരൃമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഏതാനും ഉഭയകക്ഷി കരാറുകളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതായും വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

പ്രളയാനന്തര പുനർന്വൂർമാണ്ത്തിന് പണം കണ്ടെത്താനാണ് ജി എസ്

ഐസ്ക് ബജറ്റ് ചർച്ചകൾക്ക് മറുപടി പറയവെ അറിയിച്ചു